പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം സജീവ മായി

ങ്ങ ൽ മോട്ടോർ വാഹന നിയമത്തിലെ ഉയർന്ന പിഴ തുക കുറയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് തിങ്കളാഴ്ച അന്തിമ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഇക്കാരൃത്തിൽ മുഖൃമന്ത്രിയുമായി ചർച്ച നടത്തും പിഴ തുക യുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നുവരെ സംസ്ഥാ നത്ത് ഉയർന്ന പിഴ ഈടാക്കില്ലെന്നും കർശന നടപടികൾ ഉണ്ടാ വില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു അതുവരെ വാഹന പരിശോധനയും നിയമലംഘനത്തിനെതിരെ ബോധ്വത്കരണവും തുടരുമെന്നും മന്ത്രി വൃക്തമാക്കി എൽ ഡി എഫ് തലത്തിലും ഇതുസംബന്ധിച്ച് കൂടിയാലോചന നടത്തും

രാവിലെ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും ഉച്ചയ്ക്കുശേഷം കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹയർ സെക്കന്ററി സകൂളിലും വൈകിട്ട് കോട്ടക്കൽ ചങ്കുവെട്ടി രാജാസ് ഗവ ഹയർ സെക്കന്ററിയിലും റാലിക്ക് സ്വീകരണം നൽകും ശനിയാഴ്ച രാവിലെ എറണാകുളം മഹാരാജാസ് കോളേജിലും വൈകുന്നേരം ആലപ്പുഴ ബീച്ചിലും കൊല്ലം ബീച്ചിലും സ്വീകരണം നൽകുന്ന റാലിയുടെ ആദ്യഘട്ടം ഞായറാഴച തിരുവനന്തപുരത്ത് സമാപിക്കും

പെൺകു ട്ടിയുടെയും കേസിലെ മുഖ്യപ്രതിയായ മുൻ ബി ജെ പി എം എൽ എ കുൽദീപ് സിംഗ് സെൻഗാറിന്റെയും മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു അടച്ചിട്ട മുറിയിലാണ് വിചാരണ നടക്കു ന്നത് പ്രതിരോധ ഗവേഷണ കേന്ദ്രമായ പി ആർ ഡി ഒ കരസേനക്കു വേണ്ടി വികസിപ്പിച്ച മാൻ പോർട്ടബ്ൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു തദ്ദേശീയ്മായി വികസി പ്പിച്ച ഭാരം കുറഞ്ഞ മിസൈൽ ആന്ധ്രാപ്രദേശിലെ കർണൂ ലിലാണ് പരീക്ഷിച്ചത് പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ പ്രമുഖ നേതാക്കാൾ വരും ദിവസങ്ങളിൽ എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പൊതു പര്യടനം മറ്റന്നാൾ ആരംഭിക്കും

എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ മണ്ഡലത്തിൽ വിവിധ തിരഞ്ഞെടുപ്പു യോഗങ്ങളിൽ പങ്കെടുക്കും

സി ജനറൽ സെക്രട്ടറി ഉമ്മൻ ചാണ്ടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരും വരും ദിവസങ്ങളിൽ പാലായിലെത്തും കുടുംബയോഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിനാണ് യു

എഫ് ഉൌന്നൽ നൽകുന്നത്

എ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പു പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവർ പാലായിലെത്തും

ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് പാലക്കാട് ജില്ലയിലാണ്

നാലു ദിവസം കൂടി സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യുമെന്നാണ് കാലാ വസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം മലപ്പുറം വഴിക്കടവ് ശങ്കരൻ മലയിൽ ഇന്ന് പുലർച്ചെ ഉരുൾപൊട്ടി ഇതേതുടർന്ന് കാരക്കോടൻപുഴയിൽ ജലനിരപ്പ് ഉയർന്നു പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു ഇന്നലെ വൈകീട്ട് മുതൽ വനമേഖലയിൽ പെയ്യുന്ന കനത്ത മഴയാണ് ഉരുൾപൊട്ടലിനു കാർണമായത് മലയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കാരക്കോടൻ പുഴ വഴി കുത്തിയൊലിച്ചെ ത്തിയതാണ് പരിഭ്രാന്തി പരത്തിയത് കഴിഞ്ഞ പ്രളയ സമയത്ത് ശങ്കരൻ മലയിൽ അഞ്ചോളം ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായിരുന്നു ഇന്നു രാവിലെയോടെ മഴ ശമിക്കുകയും വെള്ളത്തിന്റെ ഒഴുക്കിന് ശക്തി കുറയുകയും ചെയ്തതായി അധികൃതർ അറി യിച്ചു

മേയറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ നാല് വർഷത്തെ ഭരണം സമ്പൂർണ പരാജയമാണെന്നാരോപിച്ചാണ് എൽ ഡി എഫ് അവി ശ്വാസ പ്രമേയം കൊണ്ടു വന്നത്

ഡിസ്ട്രസ് അലെർട്ട് ട്രാൻസ്മിറ്റർ വി എച്ച് എഫ് മറൈൻ റേഡിയോ ജി പി എസ് എന്നിവയാണ് വിതരണം ചെയ്യുക

കേരള മത്സൃത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്ഥമുള്ള യാന ഉടമകൾക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം

മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള ഉത്തരവ് മനുഷ്യാവ കാശ ലംഘനമാണെന്നാരോപിച്ച് ഫ്ളാറ്റ് ഉടമകൾ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യും അഞ്ചുദിവസ ത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് ഉടമകൾക്ക് നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു നിലവിലെ സ്ഥിതിഗതികൾ സംബ ന്ധിച്ച റിപ്പോർട്ട് അധികൃതർ ഗവൺമെന്റിന് കൈമാറി ഫ്ളാറ്റ് ഉടമകൾ കഴിഞ്ഞ ദിവസം നൽകിയ തിരുത്തൽ ഹർജി സുപ്രീംകോടതി ഫയലിൽ സ്വീകരിച്ചിരുന്നു

ഇതിനായി നഗ രസഭ ടെണ്ടർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം നിയമസഭാ മണ്ഡലമായ ധർമ്മടത്തെ ഓഫീസിൽ നാളെ പൊതുജന ങ്ങളിൽ നിന്ന് നിവേദനങ്ങൾ സ്വീകരിക്കും

ഇന്നലെ ഗ്രൂപ്പിലെ മൂന്നാമത്തെ മത്സരത്തിൽ കേരളം ബംഗാളിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരം കാര്യവട്ടത്ത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക എ ടീമു കൾ തമ്മിലുള്ള ആദ്യ ചതുർദിനാടെസ്റ്റ് ക്രിക്കറ്റിന്റെ നാലാം ദിന മായ ഇന്ന് ഇന്ത്യ എ ടീം ഏഴ് വിക്കറ്റിനു ജയിച്ചു

ആലപ്പുഴയിലെ പായിപ്പാട് ജലോത്സവത്തോടനുബന്ധിച്ചുള്ള മത്സര വള്ളംകളി നാളെ നടക്കും ഇന്ന് ഉച്ചയ്ക്കുശേഷം ജല മേള ഉണ്ടായിരിക്കും

ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലാണ് ആദ്യ മത്സരം ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും ഭീകരാക്രമണ ഭീഷണിയെത്തുടർന്ന് മലപ്പുറം ജില്ലയുടെ തീരപ്രദേശത്ത് ബോട്ടുകളിലും വള്ളങ്ങളിലും പരിശോധന കർശനമാക്കി തീരദേശ പൊലീസും ഫിഷറീസ് വകുപ്പും ചേർന്നാണ് പരിശോധന നടത്തുന്നത് കടലിലിറങ്ങുന്ന മുഴുവൻ തൊഴിലാളികളും തിരിച്ചറിയൽ രേഖകൾ കൈവശം വയ്ക്കണമെന്ന് ഫിഷറീസ് വകുപ്പ് നിർദേശം നൽകിയിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ബോട്ടിലുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള പൂർണമായ വിവരങ്ങൾ ബോട്ട് ഉടമയുടെ കൈവശമുണ്ടായിരിക്കണമെന്നു നിബന്ധനയും കർശനമാക്കിയിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ ബസിൽ നിന്നിറക്കി വിട്ട രോഗിയായ യാത്ര ക്കാരൻ മരിച്ച സംഭവത്തിൽ സ്കാര്യ ബസ് ജീവനക്കാർക്കെ തിരെ പൊലീസ് കേസെടുത്തു

പ്രാഥമിക ചികിത്സ നൽകാതെ ബസ്സിൽ നിന്നിറക്കി ഓട്ടോയിൽ കയറ്റിവിട്ടെന്ന പരാതിയിലാണ് ജീവന ക്കാർക്കെതിരെ പൊലീസ് കേസെടുത്തത് കോഴിക്കോട് ബീച്ചിൽ ലയൺസ് പാർക്കിന് സമീപം കടലിൽ കാണാതായ വിദ്യാർഥിയുടെ മൃതദേഹം കണ്ടെത്തി കൊടുവള്ളി സ്വദേശിയായ ആദിൽ അഫ് സാദിന്റെ മൃതദേഹമാണ് രാവിലെയോടെ കണ്ടെത്തിയത് മൃതദേഹം കോഴിക്കോട് ബീച്ച്ആശുപത്രിയിലേക്ക് മാറ്റി

വാരാമ്പറ്റ ആലക്കണ്ടിയിൽ അമ്മാളുവാണ് മരിച്ചത്

കോതമംഗലത്ത് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ അഞ്ച് കിലോ കഞ്ചാവുമായി രണ്ട് പേർ പിടിയിലായി ഒഡീഷാ സ്വദേശികളായ ഗോപി ബാബു നായിക്ക് എന്നിവരാണ് നഗര സഭാ ബസ്സ്റ്റാന്റ് പരിസരത്തു നിന്നും പിടിയിലായത് ഇവർ ഒഡീഷ്യയിൽ നിന്നും കഞ്ചാവ് മൊത്തമായി കേരളത്തിൽ എത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നവരാണന്ന് സംശയമുണ്ട് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റേയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റേയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഇന്ന് സമാപിക്കും സ്മാപന സമ്മേ ളനം വൈകിട്ട് ആറിന് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ കലാകാരൻമാരെ കോർത്തിണക്കി ഭാരത്ഭവൻ അവതരിപ്പിക്കുന്ന നൃത്തോത്സവം അരങ്ങേറും യോഗ കുങ്ഫൂ പ്രദർശനം കോൽക്കളി ഒപ്പന നാടകം ഗാനമേള തുടങ്ങിയ പരിപാടികളും ഇന്ന് നടക്കും പ്രളയ രക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത മത്സ്യതൊഴിലാളികളെ ചടങ്ങിൽ ആദരിക്കും കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം പ്രാഥമികാരോഗൃ കേന്ദ്രത്തെ കുടുംബാരോഗൃ കേന്ദ്രമാക്കി ഉയർത്തുന്ന തിനുള്ള നടപടികൾ ആരംഭിച്ചു ഇതിന്റെ മുന്നോടിയായി ഒ

ആറ് മണി വരെയാക്കുന്നതിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ ടി

രാജേഷ് എം

എ നിർവഹിക്കും തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പെയ്സ് സയൻസ് ആന്റ് ടെക്നോളജി സംഘടിപ്പിക്കുന്ന ഡോ

ജെ അബ്ദുൾ കലാം പ്രഭാഷണ പരമ്പരയിലെ അഞ്ചാമത്തെ പ്രഭാ ഷണം നാളെ നടക്കും തിരുവനന്തപുരം ഐ

ടി കാമ്പ സ്സിൽ നടക്കുന്ന പരിപാടിയിൽ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി റിട്ട വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ പ്രഭാഷണം നട ത്തും ശനിയാഴ്ച ഐ